സാഹചര്യം ഗൌരവതരമായാലും നേരിടാൻ സജ്ജമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

സംസ്ഥാനത്തെ എല്ലാ സർവ്വകലാശാല പരീക്ഷകളും മൂല്യനിർണ്ണയവും മാറ്റിവെച്ചു

കണ്ണൂരിൽ രണ്ടുപേർക്കും കോഴിക്കോട് തൃശൂർ കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്

ടെട്ട സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം കൂടുതൽ ഗൌരവതരമായാൽ അതും നേരിടാൻ സജ്ജമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാസർകോട്ട് കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തതോടെ അവിടുത്തെ നിയന്ത്രണങ്ങൾ ഇനിയും ശക്തമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു കണ്ണൂർ മെഡിക്കൽ കോളജ് ആശുപത്രി കോവിഡ് ആശുപത്രിയാക്കും

എല്ലാ ജില്ലകളിലും ഇത്തരം പരിശോധന നടത്തും വാഹനങ്ങളെയും വ്യക്തികളെയും നേരിട്ട് സ്പർശിക്കാതെ ആയിരിക്കും ശനിയാഴ്ച മുതൽ വാഹന പരിശോധന ഉൾപ്പെടെ പോലീസ് നടപടികൾ

കൊടുംവെയിലിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ഇടവേളകളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് റെസിഡന്റ്സ് അസോസിയേഷനുകളുടെ സഹകരണം സംസ്ഥാന പോലീസ് മേധാവി അഭ്യർഥിച്ചു

ടെട്ടി ഇടുക്കി ജില്ലയിൽ രണ്ട് പേരിൽ കോവിഡ് ബാധ കണ്ടെത്തിയെങ്കിലും സ്ഥിതിഗതികൾ പൂർണ്ണനിയന്ത്രണ ത്തിലാണെന്ന് മന്ത്രി എം എം എണി പറഞ്ഞു വ്യാജപ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും പാലിച്ച് ലോക്ഡൌൺ കാലാവധി തീരുന്നതുവരെ വീടുകളിൽ കഴിഞ്ഞാൽ കോവിഡിനെ തുരത്താനാകുമെന്ന് മന്ത്രി പറഞ്ഞു

ടെട്ടിട കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ഒരു കോവിഡ് രോഗബാധകൂടി സ്ഥിരീകരിച്ചു

ഇതോടെ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം ജില്ലയിൽ ആറായി

നാലുപേരാണ് ഇപ്പോൾ ചികിത്സയിൽ

ടെട്ടി കോവിഡ് സംബന്ധിച്ച ഊഹാപോഹങ്ങൾ തടയുന്നതിൽ ആകാശവാണിയ്ക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രോഗനിയന്ത്രണത്തിനും ഗവൺമെന്റ് എടുത്ത നടപടികളും വിദഗ്ധരുടെ അഭിപ്രായവും മാത്രമല്ല രോഗനിയന്ത്രണത്തിലെ വിഷമതകളും ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും പുറത്ത് കൊണ്ടുവരണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ന്യൂഡൽഹിയിൽ റേഡിയോ ജോക്കികളുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി ടെട്ട കൊറോണ വ്യാപനവും നിയന്ത്രണങ്ങളും സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ദുരിതത്തിലാക്കുകയും ജീവിതം താറുമാറാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അടുത്ത മൂന്ന് മാസത്തെ വൈദ്യുതിചാർജും വെള്ളക്കരവും ഒഴിവാക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ

വിദ്യാർഥികളും രക്ഷിതാക്കളും വിവിധ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിലെ അസൌകര്യം ഒഴിവാക്കാനാണ് പരീക്ഷ മാറ്റിയതെന്നു കേന്ദ്രമന്ത്രി രമേഷ് പൊഖ്രിയാൽ ട്വിറ്ററിൽ കുറിച്ചു ടെട്ട രാജ്യവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലാ പരീക്ഷകളും മൂല്യനിർണയ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചതായി ഉന്നതവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു

ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് സഹായം